ക്കിൽ കോഴിക്കോട്ട് രണ്ടു വിദ്യാർത്ഥികൾക്കെതിരെ യു എ പി എ ചുമത്തിയതി നോട് ഗവണ്മെന്റിന് യോജിപ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരും കോഴിക്കോട്ടും കാർഷിക വ്യവസായ പാർക്കുകൾ ആരംഭിക്കു മെന്ന് മന്ത്രി ഇ

ജയരാജൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ശിവഗിരിയിൽ നിന്ന് രാവിലെ ഗാന്ധി സങ്കല്പ യാത്ര ആരംഭിക്കും വാളയാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി യിൽ പങ്കെടുക്കും

വിപണി ലഭ്യതയും നിരക്കുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും രമ്യമായി പരിഹരിക്കണമെന്ന ആവശ്യത്തിൽ ഇന്ത്യ ഉറച്ചുനിന്നതിനെ തുടർന്നാണ് ചർച്ച വഴിമുട്ടിയത് എന്നാൽ ഉച്ചകോടിയിലെ ചർച്ചകളിൽ അനുകൂലമായ തീരു മാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഔദ്യോഗിക കേന്ദ്രങ്ങൾ ബാങ്കോക്കിൽ അറിയിച്ചു ് ് ് ് ് ് ് കോഴിക്കോട്ട് രണ്ടു വിദ്യാർത്ഥികൾക്കെതിരെ യു എ പി എ ചുമത്തിയ പൊലീസ് നടപടിയോട് ഗവൺമെന്റിന് യോജിപ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടി ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് വ്യക്തമാ ക്കി പൊലീസ് യു എ പി എ ചുമത്തിയാൽ അത് ഉടൻ പ്രാബല്യത്തിൽ വരി ല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവൺമെന്റിന്റെയും യു എ പി എ സമിതിയുടെയും പരിശോധന ആവശ്യമാണെന്ന് അദ്ദേഹം അറിയിച്ചു യു എ പി എയ്ക്ക് എതിരെ സംസാരിക്കാൻ കോൺഗ്രസിന് അധികാരമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

നിരപരാധികളെയും ജനാധിപത്യപരമായി പ്രവർത്തി ക്കുന്നവരെയും ഇല്ലാതാക്കാനുള്ള വഴിയായി അത് പ്രട്ടോഗിക്കാൻ പാടില്ലെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു രണ്ട് വിദ്യാർത്ഥിക്കൾക്കെതിരെ യു എ പി എ ചുമത്തിയത് എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ തിരിച്ചുവിടാൻ നടത്തുന്ന പ്രചരണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കുറ്റപ്പെ ടുത്തി ഇവർക്കെതിരെ യു എ പി എ ചുമത്തരുതെന്ന നിലപാടാണ് പാർട്ടിയുടേ തെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് അറിയിച്ചു

എല്ലാവർക്കും മേൽ ചുമത്താവുന്ന നിയമമല്ല ഇതെന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ അനുമതി വേണമെന്നും അവർ കോഴിക്കോട്ട് പറഞ്ഞു

മുഹമ്മദ് റിയാസ് കോഴി ക്കോട്ട് പറഞ്ഞു

കോഴിക്കോട്ട് അന്താരാഷ്ട്ര നാളികേര കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കോക്കനട്ട് പാർക്കുകളിൽ വൃവസായം ആരംഭിക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നത് പരിഗണനയിലുണ്ടെ ന്നും മന്ത്രി പറഞ്ഞു റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ടും സമാനമായ ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ഗവൺമെന്റ് ഓഫീ സുകൾ കയറിയിറങ്ങാതെ തന്നെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റുന്ന തരത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഓട്ടോ നീം ജി ഇന്ന് നിരത്തിലിറ ങ്ങും രാവിലെ എം എൽ എ കാർട്ടേഴ്സിൽ നിന്ന് നിയമസഭയിലേക്ക് നടത്തുന്ന ആദ്യസർവീസ് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും

പൊതുമേഖലാ സ്ഥാപനമായ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡാണ് ഇ ഓട്ടോ നിർമ്മിച്ച് നിരത്തിലിറക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം രാജ്യത്ത് ആദ്യമായാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം ഇ ഓട്ടോ നിർമ്മാണത്തിന് യോഗ്യത നേടുന്നത്

ളീധരന്റെ നേതൃത്വത്തിൽ ശിവഗിരിയിൽ നിന്ന് ഇന്നുരാവിലെ സങ്കല്പയാത്ര ആരംഭിക്കും ബി ജെ പി രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന ഗാന്ധി സങ്കല്പ യാത്രയുടെ ഭാഗമായാണ് ഇത് ഗാന്ധിയൻ ഗോപിനാഥൻ നായർ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് കല്ലമ്പലത്ത് പൊതുസമ്മേളനത്തോടെ യാത്ര സമാപിക്കും സ്വാത ന്ത്ര്യസമര സേനാനി കെ

ഐ അന്വേഷണം ആവശ്യപെട്ട് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പാലക്കാട്ട് ഏകദിന ഉപവാസം നടത്തും രാവിലെ കോട്ടമൈതാനത്ത് എ

സി ജനറൽ സെക്രട്ടറി കെ

വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും വൈകീട്ട് സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കെ

സി മുൻ പ്രസിഡന്റ് വി

സുധീരൻ നിർവഹിക്കും ന നാളെ യു

എഫ് പാലക്കാട് ജില്ലയിൽ ഹർത്തലിനും ആഹാനം ചെയ്തിട്ടുണ്ട്

അർധ സെഞ്ചുറി നേടിയ മുഷ്ഫിഖുർ റഹീമിന്റെ പ്രകടനമാണ് ബംഗ്ലാദേ ശിന്റെ വിജയത്തിൽ നിർണ്ണായകമായത്

ഇതേ വിഭാഗം ഹൈജമ്പിൽ എം ജിഷ മീറ്റ് റെക്കോർഡ് കുറിച്ചു

കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ഫുട്ബാൾ സെമിഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും

രണ്ട് മുതൽ എട്ടുവരെ കണ്ണൂരിൽ നടക്കും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും മത്സരം

ത്തിൽ പാലിച്ചോൻ അച്ചാന്തുരുത്തി ബി ടീം ജേതാക്കളായി എ ടീമിനാണ് രണ്ടാം സ്ഥാനം വിജയികൾക്ക് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സമ്മാനം വിതരണം ചെയ്തു

സ്കൂൾതലത്തിൽ പൂങ്കാവ് എം ഐ എച്ച് എസ് വാണിയംകുളം ടി ആർ കെ എച്ച് എസ് എസ് വളവന്നൂർ ബി വൈ കെ വി എച്ച് എസ് എസ് എന്നിവരാണ് ആദ്യ സ്ഥാനങ്ങളിൽ

ദേശീയപാത നാലുവരിയാക്കി വികസിപ്പിക്കുന്ന കാര്യത്തിൽ തികച്ചും അവസരവാദപരവും ദേശീയ താൽപര്യത്തിന് വിരുദ്ധവുമായ രീതിയിലാണ് ദേശീയപാത അതോറിറ്റി പ്രവർത്തിക്കുന്നതെന്ന് ് മന്ത്രി ജി സുധാകരൻ ആരോപിച്ചു കിഫ്ബി പദ്ധതിയിലുൾ പ്പെടുത്തി നവീകരിക്കുന്ന കോഴിക്കോട് മണ്ണൂർ ചാലിയം റോഡ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

എന്നിട്ടും പദ്ധതിയുടെ ടെൻഡർ നടപടികൾ വൈകിപ്പിക്കുന്ന നീക്കമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കർണാടക വൈൻ ബോർഡ് മാതൃക പിന്തുടർന്ന് കേരളത്തിലും പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ പാനീയങ്ങൾ നിർമ്മിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി കെ

അന്താരാഷ്ട്ര കോക്കനട്ട് കോൺഫറൻസ് ആൻഡ് എക്സ്പോയുടെ ഭാഗമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച സെമിനാ റിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ കാർഷിക മേഖലയിൽ ഉത്പാദനക്ഷമത കുറവാ ണെന്നും മന്ത്രി പറഞ്ഞു

ഗ്രാമപഞ്ചായത്തുകൾ എല്ലാ മേഖലയിലും സ്ഥയം പര്യാപ്തതയിലേക്ക് വളരണമെന്ന് മന്ത്രി ഇ

കാസർകോട് ചെറുവത്തൂർ പിലി ക്കോട് ഗ്രാമപഞ്ചായത്ത് ഐ എസ് ഒ ഗുണനിലവാര പ്രഖ്യാപനവും വയോജന സംഗമത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി

കുഴിയം മാമൂട് ഉളിയങ്ങാട് കേരളപുരം റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി തീരദേശത്തെ റോഡുകൾക്ക് പുറമേ സ്കൂളുകൾ ആശുപത്രികൾ തുടങ്ങയിവയെല്ലാം നവീകരിക്കു കയാണ് കുടിവെള്ള പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പരിഗണനയാണ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു

സംസ്ഥാനത്തെ മ്യൂസിയങ്ങൾ അന്താരാഷ്ട്ര സങ്കൽപ്പങ്ങൾക്ക നുസരിച്ച് തീമാറ്റിക്ക് മ്യൂസിയങ്ങളായി മാറ്റുകയാ ണെന്നും മന്ത്രിപറഞ്ഞു ഗാന്ധി സ്മൃതി മ്യൂസിയം തെയ്യം മ്യൂസിയം കൈത്തറി മ്യൂസിയം തുടങ്ങി ആറോളം മ്യൂസിയങ്ങൾ ഇത്തരത്തിൽ സജീകരിക്കും സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ ഗാന്ധി സ്മൃതി മ്യൂസിയവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ പയ്യന്നൂരിൽ മ്യൂസിയം ശിൽപ്പശാലയും സർവ്വെയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ഭാഗം ജീവനക്കാർ പണിമുടക്ക് ആരംഭിച്ചു

തുടർച്ചയായ ശമ്പള നിഷേധം അവസാനിപ്പിക്കുക ശമ്പള പരിഷ്കരണം നടപ്പി ലാക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക പുതിയ ബസ്സുകൾ ഇറക്കുക തുട ങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് പണിമുടക്കിനെ നേരിടാൻ ഗവൺമെന്റ് ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്

നൽകുന്നതിനുവേണ്ടി ചെറുതോണി കല്ലാർ ഇരട്ടയാർ ഡാമുകളിൽ പുതുതായി സ്ഥാപിച്ചിരിക്കുന്ന സൈറണുകളുടെ ട്രയൽറൺ നാളെ രാവിലെ എട്ടിനും വൈകിട്ട് അഞ്ചിനും ഇടയിൽ നടത്തും

മുനിയറകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തു കയെന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ വിവിധ വകുപ്പു കളും സംഘടനകളും വിദ്യാർത്ഥികളും കൈകോർത്തു ദേവികുളം സബ് കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

ഉത്തരവിനെതിരെ സംസ്ഥാന ഗവൺമെന്റ് നൽകിയ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും കേസ് ഡയറിയും ഇന്ന് ഹാജരാക്കിയേക്കും നേരത്തെ ഗവൺമെന്റിന്റെ അപ്പീൽ പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് കുറ്റപത്രത്തിൽ പോരായ്മകളുണ്ടെന്ന് നിരീക്ഷിക്കുകയും ഇന്ന് കേസ് ഡയറി ഹാജരാക്കാൻ നിർദേശിക്കുകയുമായിരുന്നു